സ്ഥിരീകരിച്ചു

അവസ്ഥയിലൂടെയെന്ന് മുഖ്യമന്ത്രി

പോലും പാഴാക്കാള്ളി ഫ്ലപ്രദമായി ഗുണഭോക്താക്കൾക്ക്വിതരണം ചെയ്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തെ അഭിനന്ദിച്ചു

ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ പോലീസ് നടപടി ഊർജ്ജിതം

മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റത്തിന് ആദരാജ്ഞലി അർപ്പിച്ച് പ്രധാനമന്ത്രി

ഒരു പ്രദേശത്ത്രെ ്ഹോട്ട് സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി

രണ്ടാം തരംഗത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം ദിനംപ്രതി ഉയരുന്ന സാഹചര്യത്തിൽ ഓക്സിജന്റെ ആവശ്യം വലിയതോതിൽ വർധിച്ചിരിക്കുകയാണ്

ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽശേഖരം ഉണ്ടാക്കുന്നതിന് കേന്ദ്രത്തിന്റെ സഹായം ആവശ്യമാണെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടി

ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ട്വീറ്റ് സന്ദേശത്തെ ഉദ്ധരിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പ്രസ്തുത നടപടിയിൽ പ്രി്ടാനമന്ത്രി സംസ്ഥാനത്തെ ആരോഗ്യപ്രവർത്തകരേയും നഴ്സുമാ്രെയും പ്രത്യേകം അഭിനന്ദിച്ചു

വിശദ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ജനങ്ങൾക്കിടയിൽ കൊവിഡ് ഭീതി പരക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഓരോ തദ്ദേശ സ്ഥാപനതലത്തിലും നാലോ അഞ്ചോ പേർ അടങ്ങുന്ന കൌൺസലർമാരെ പരിശീലനം ലഭിച്ചു നിയോഗിക്കാനാണ് തീരുമാനം

ഞായർ വരെ ആളുകൾ അത്യാവശൃ കാരൃങ്ങൾക്കുമാത്രമേ പുറത്തിറങ്ങുന്നുള്ളൂ എന്നും അനാവശൃമദൃയി വാഹനങ്ങൾ പുറത്തിറക്കുന്നില്ലെന്നും ആൾക്കൂട്ടമുണ്ട്ടാക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ പോലീസ് ജാഗ്രത പൂലൂർത്തുന്നുണ്ട് നിയമ ലംഘകർക്കെതിരെ കേസെടുക്കു്നു തുൾപ്പെടെയുള്ള നിയമനടപടികൾ എടുക്കുന്നുണ്ട്ട് ഓക്സിജൻ ലഭ്യത ശ്രീചിത്ര ആശുപത്രിയിൽ ഓക്സിജൻ ലഭ്യതയിൽ ഉണ്ടായ സാങ്കേതിക ബുദ്ധിമുട്ട് അടിയന്തിര ഔദ്യോഗിക ഇടപെടലിലൂടെ പരിഹരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു സ്ഥിരം ലഭിച്ചു കൊണ്ടിരുന്ന ഓക്സിജൻ സിലിൻഡറുകളുടെ എണ്ണത്തിൽ കുറവ് വന്നതിനാൽ ആണ് പ്രതിസന്ധി രൂപപ്പെട്ടത് കാസർകോട് ഇൻട്രോ കാസർകോട് ജില്ലയിൽ കോവിഡ് വ്യാപനം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കാൻ സാമൂഹ്യനീതി വകുപ്പ് വിവിധ പദ്ധതികൾ ഒരുക്കുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി കാസർകോട് ജില്ല പ്രതിനിധി പി

രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി ഭൌതിക ശരീരം നാളെ സംസ്കരിക്കും